സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്ന ഭേദഗതിബിൽ രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ചു സംവരണ രണ്ടാം ഭേദഗതിബിൽ രാജ്യസഭ പാസാക്കി മോട്ടോർവാഹന നിയമലംഘനങ്ങളിൽ ഒരേസമയം ബോധവത്ക്കരണവും ശിക്ഷാനടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി എ

സംസ്ഥാനത്തിന് പുറത്തെ ജനങ്ങൾക്ക് ജമ്മുകശ്മീരിൽ ഭൂമി വാങ്ങുന്നത് വില ക്കുന്ന നിയമവും റദ്ദാക്കിയിട്ടുണ്ട് രാജ്യസഭയിൽ ഇത് സംബ ന്ധിച്ച ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചയു ടൻ രാഷ്ട്രപതി രാംനാഥ്കോവിന്ദ് ഭരണഘടനാ ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു ഉത്തരവ് ഉടൻ പ്രാബലൃത്തിൽ വരും

ഭരണഘടനയിൽ സമയാസമയങ്ങളിൽ വരുത്തുന്ന ഭേദ ഗതികൾ ജമ്മുകശ്മീരിനും ബാധകമായിരിക്കുമെന്ന് വിജ്ഞാ പനം വൃക്തമാക്കി

ജമ്മുകശ്മീരിനെ നിയമസഭയോടുകൂടിയ കേന്ദ്രഭരണപ്രദേശമായും ലഡാ ക്കിനെ നിയമസഭയില്ലാത്ത കേന്ദ്രഭരണപ്രദേശമായും മാറ്റും ജമ്മുകശ്മീർ പുനഃസംഘടനാ ബിൽ എന്ന പേരിലാണ് ഭേദ ഗതി അമിത്ഷാ അവതരിപ്പിച്ചത് ബിൽ അവതരണത്തെ തുടർന്ന് രാജ്യസഭയിൽ പ്രതി പക്ഷം കടുത്ത പ്രതിഷേധം അറിയിച്ചു

ബിൽചർച്ച പൂർത്തിയായ ശേഷമേ പ്രമേയവും ഭേദഗതിബില്ലും സഭ വോട്ടിനിടൂ എന്ന് രാജ്യസഭാ അധ്യ ക്ഷൻ അറിയിച്ചു പ്രമേയങ്ങളും ഭേദഗതിയും വെവ്വേറെ വോട്ടിനിടുമെന്നും വെങ്കയ്യനായിഡു ഉറപ്പുനൽകി

ജമ്മുകശ്മീരിലെ നില വിലെ സംവരണത്തോടൊപ്പം സാമ്പത്തികമായി ദുർബല വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ ബിൽ വ്യവസ്ഥ ചെയ്യു

റോഡ് സുരക്ഷാ ആക്ഷൻ പ്ലാനിന്റെ കോഴിക്കോട് മുണ്ടിക്കൽതാഴത്ത് പരിശോധന നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

അങ്കണവാടികളിൽ കൂടുതൽ സൌകര്യങ്ങളൊരുക്കി മികച്ച ആരോഗ്യം ഭക്ഷണം വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കും കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ അങ്കണവാടികെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്രയെ രാജ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്താക്കിയ പ്രഖ്യാപനവും വള്ളിക്കുന്ന് അത്താണിക്കൽ പിഎച്ച് സിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയതിന്റെ ഉദ് ഘാടനവും നിർവഹിക്കു കയായിരുന്നു മന്ത്രി

സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇൻഡ്യ ചെയർമാൻ അനിൽകുമാർ ചൌധരിയും യോഗത്തിൽ പങ്കെടുക്കും

സ്റ്റീൽ കോംപ്ലക്സ് വിഷയത്തിൽ ഗവൺമെന്റുകൾ അലംഭാവം കാണിക്കുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം വിച്ഛേദിച്ച വൈദ്യുതി പുനസ്ഥാപിക്കുക എത്രയും പെട്ടെന്ന് ഉല്പ്പാദനം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു മുൻ മന്ത്രി പി ശങ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനാപകട ത്തിൽ മരിച്ച സംഭവത്തിൽ സർവെ ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടറാമിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജൂഡീ ഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും സംഭവത്തിൽ ശ്രീറാം വെങ്കട്ടറാമിനെതിരായ വകുപ്പു തല നടപടി ഇന്നുണ്ടായേക്കും സംസ്ഥാന പൊലീസിന്റെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയാൽ സസ്പെൻഷൻ ഉണ്ടായേക്കും

തത്സ മയ സംപ്രേഷണത്തിനാവശൃമായ സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്നറിയില്ലെന്ന് ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ ബി ആർ ഗാവെ എന്നിവരടങ്ങിയ ബെഞ്ച് അറി യിച്ചു

അഖിലേന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച ക്ർഷക പാർലമെന്റിന്റെ തുടർച്ചയായാണ് നിവേദനം നൽകിയത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആദായവില ഉറപ്പാക്കുക കർഷകന്റെ കടബാധ്യതകൾ ഒഴിവാക്കുക എന്നീ ബില്ലുകൾ പാർലമെന്റ് പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജില്ലാ കളക് ടർ മുഖേന കർഷകസംഘം ഇടുക്കി ജില്ലാ കമ്മറ്റി രാഷ് ട്രപതിക്ക് നിവേദനം നൽകിയത്

അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ബഹി ഷ്ക്കരിക്കാനാണ് ഡൽഹിയിൽ ഇന്നലെ ചേർന്ന യോഗത്തി നുശേഷം ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതേ സമയം മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തുന്ന റിലേ നിരാ ഹാര സമരം തുടരും

കന്യാകുമാരി മുംബൈ ജ യന്തിജനത നാഗർകോവിൽ തിരുനെൽവേലി വഴി പോകുന്ന മുംബൈ എക്സ്പ്രസ് തിരുവനന്തപുരം ലോക മാനൃതിലക് എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത് നേരത്തെ വഴിതിരിച്ചുവിട്ട തിരുനെൽവേലി ജാംനഗർ കൊച്ചുവേളി ചണ്ഡീഗഡ് സമ്പർക്കക്രാന്തി ദൈവാര ട്രെയിനുകളും ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട് എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് പാലക്കാട് സേലം ജോലാർപേട്ട റെനിഗുണ്ട ജംഗ്ഷൻ വഴി തിരിച്ചു വിട്ടു

മാക്കൂട്ടം പെരു മ്പാടിക്കടുത്ത് ഇന്ന് പുലർച്ചെ ഒന്നരമണിയോടെയാണ് മണ്ണി ടിഞ്ഞത് മൈസൂർ ബംഗലുരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാനന്തവാടി വഴി തിരിച്ചുവിട്ടു

മലപ്പുറം വാഴയൂരിൽ വീടിന് മുകളിൽ മരംവീണ് വീട്ടമ്മ മരിച്ചു ചെലാട്ട് മൂലക്കോയപ്പുറത്ത് ജാനകി ആണ് മരിച്ചത്

ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി

ഉളിക്കൽ മണിക്കടവ് ഭാഗങ്ങളിൽ പുഴ കരകവിഞ്ഞ് പാലങ്ങൾ വെള്ളത്തി നടിയിലായി പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ ആദികടലായിയിലെ അബ്ദുൾ റൌഫ് വധക്കേസിൽ ഒരാളെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു എസ് ഡി

ഐ പ്രവർത്തകൻ ഹസ്രത്ത് നിസാമുദ്ദീൻ ആണ് അറസ്റ്റിലായത്

ഡി

പള്ളിക്കുന്നിലെ എ

മലപ്പുറം ചേളാരി സ്വദേശിയെയാണ് കാണാതായത്

ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മഴ തിരച്ചിലിന് തടസ്സമാവുന്നതായാണ് റിപ്പോർട്ട്

കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ സഭ ഭൂമിയിടപാട് കേസിലെ പുനഃപരിശോധനാ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോട തി യാണ് കേ സ് പരിഗണിക്കുന്നത്

അന്താരാഷ്ട്രവി പണിയിൽ സ്വർണവില വർദ്ധിച്ചതാണ് ആഭ്യന്തരവിപണി യിലും പ്രതിഫലിച്ചത്

രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ചെറു കിട സൂക്ഷ്മ സംരംഭങ്ങളെ ഉൾപ്പെടുത്തി കുടുംബശ്രീ സംസ്ഥാന മിഷനാണ് മേള സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം ഒന്നിന് മേള ആരംഭിക്കും

എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി

സി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കുറ്റിച്ചിറ ഇടിയങ്ങര യുവതരംഗ് വി കെയർ പാലിയേറ്റീവ് വെൽഫെയർ വിംഗ് പ്രവർത്തനമാരംഭിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

പ്രദേശത്തെ നിർധനരായ രോഗികൾക്ക് ഓക്സിജൻ കൊൺസൺട്രേറ്റർ വീൽചെയർ എയർബെഡ് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ സൌജനൃമായി നൽകുകയും ഉപയോഗ ശേഷം തിരിച്ചേല്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് വി കെയർ

സംഭവത്തിൽ വിമാനത്താവളത്തിൽ സേവനത്തിലുള്ള സ്ഥകാര്യ സ്ഥാപനത്തിലെ രണ്ട് ജീവന ക്കാർ പിടിയിലായി ഷൂവിനുള്ളിലാക്കി സ്വർണ്ണം പുറത്തേക്ക് കടത്തുമ്പോഴാണ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത്